സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ജെയ് ഷെ മുഹമ്മദ് കമാണ്ടർ ഉൾപ്പെടെ രൃണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു

എസ്

ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു

ദൂരൂപയോഗംചെയ്യാതിരിക്കാൻ പുതിയ സാങ്കേതിക വിദ്യ രൂപീകരിക്കണമെന്ന് അധികൃതരോട് ആവശൃപ്പെടുമെന്ന് കേന്ദ്രം

മച്ചിൽ സെക്ടറിൽ ഇന്ന് രാഷ്ട്രിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ യാതൊരു പ്രകോപനവും ഇല്ലൂതെ പാക് സൈന്യം വെടി ഉതിർക്കുകയായിരുന്നുഷ്ണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു നിരവധി സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്

ജയ്ഷെ മുഹമ്മദ് തീവ്രവാദ സംഘടനയുടെ തലവൻമാരിലൊരാളായ പാക്കിസ്ഥാൻ പൌരൻ മുന്നാ ലാഹോറിയും സീനത്തുൽ ഇസ്താം സംഘടനയിൽ പെട്ട മറ്റൊരാളുമാണ് മരിച്ചത്

ഷോപ്പിയാനിലെ ബേൻബാസർ ബോയ് മൊഹല്ലയിൽ സുരക്ഷ സൈനികർ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനായ ലാഹോറിയെയാണ് ദക്ഷിണ കശ്മീരിലെ യുവാക്കളെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ചുമതല ജയ്ഷെ ഏൽപ്പിച്ചിരിക്കുന്നത്

സ്ട്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനവുമായി ചാവേർ ക്രിഅബ് ബന്ദ് നഗരത്തിലെ ഒരു കെട്ടിടത്തിലേക്ക് ഓടിച്ച് ് കയറ്റുകയായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം താലിബ്ട്റ്റ് ഏറ്റെടുത്തായി അഫ്ഗാൻ പോലീസ് അധികൃതർ അറിയിച്ചു

വോയിസ് റെയിൽവേ ട്രാക്ക് വെള്ളത്തിൽ മുങ്ങിയതിനെ തുടർന്ന് ട്രെയിനിന് സർവ്വീസ് തുടരാൻ കഴിയാതെ വരികയായിരുന്നു

ട്രെയിട്ടിന്റെ ഫ്ളാറ്റ്ഫോംവരെ ജലനിരപ്പുള്ളതിനാൽ യാത്രക്കാർ പ് ട്രെയിനിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ്

ഇവരെ ഹെലികോപ്റ്റർ മാർഗം രക്ഷപ്പെടുത്താൻ നാവിക സേന ശ്രമം തുടരുകയാണ് ദുരന്തനിവാരണ സേനയും ബോട്ടുകളിൽ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്

കാശ്മീരിൽ കത്വയ്ക്കുസമീപം റോഡിലുണ്ടായ ജലപ്രവാഹത്തിൽ ഒഴുകാൻ തുടങ്ങിയ ബസ്സിലെ യാത്രക്കാരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ഉത്തരാഖണ്ഡിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സ്കൂളുകൾക്ക് അവധി നൽകി

വരുമാനം സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് ലഭിക്കുന്നതാണ് ഇതിന് കാരണഭ്മന്ന് അദ്ദേഹം പറഞ്ഞു

പ്രധാനമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റശേഷമുള്ള രണ്ടാമത്തെ മൻകി ബാത്ത് പരിപാടിയാണിത്

ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പ്രാദേശിക ഭാഷകളിൽ രാത്രി എട്ടിന് പരിപാടി പുനപ്രക്ഷേപണം ചെയ്യും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രക്ഷേപണ മന്ത്രാലയം ആകാശവാണിയുടെയും ദൂരദർശന്റെയും യു ടൂബ് ചാനലുകൾ എന്നിവിടങ്ങളിലും പരിപാടി കേൾക്കാം

കള്ളപ്പണ നിരോധന നിയമം പി എം

സതീഷ് ബാബുവിന്റെ ന്യൂഡൽഹിയിലെ പ്രത്യേക കോടതിയിൽ ഇന്ന് ഹാജരാക്കിൽ ഇയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ൃഅ്ഴിമത്തി ആരോപണത്തിന്റെ പേരിൽ സി ബി ഐ മുൻ ഡയറക്ടർ രാകേഷ് അസ്താനക്കെതിരെ ക്രിമിനൽ എഫ്

ആർ രജിസ്റ്റർ പ്ലെയ്തത്

കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയാണ്

ഇലക്ട്രിക് വാഹനങ്ങൾ സൌരോർജ്ജ പദ്ധതികൾ ലോട്ടറി തുടങ്ങിയവയിലെ നികുതി കുറയ്ക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്ന് സൂചനയുണ്ട്

വാട്സാപ്പിലൂടെ പണമിടപാടുക്ടൂൾ സാധ്യമാക്കുന്ന പുതിയ സംവിധാനം ആർ ബി ഐ എൻ

സി

മൂന്ന് ട്രില്ല്യൺ ഡോളർ ഡിജിറ്റൽ സാമ്പത്തിക ശക്തി എന്ന ഇന്ത്യൻ കാഴ്ചപ്പാടുകളിൽ പങ്കാളിയാകാൻ അദ്ദേഹം വാട്സാപ്പിനോട് ആവശ്യപ്പെട്ടു

ഡി എസ് സഖ്യം ചേർന്ന് രൂപീകരിച്ച കുമാരസ്വാമി ഗവൺമെന്റ് നിലം പതിച്ചത് കോൺഗ്രസിലേയും ജെ ഡി

ജെ

ഇതിനിട്ട് ക്യൂന്ന് വിമത എംഎൽഎമാരെ സ്പീക്കർ അയോഗ്യരാക്കിയിരുന്നുക്കുംബാക്കിയുള്ളവരുടെ കാര്യത്തിൽ രണ്ട് ദിവസത്തിനകം തീരുമാനമെട്ടുക്കുമെന്നും സ്പീക്കർ വൃക്തമാക്കിയിട്ടുണ്ട്

ഒരു വിഭാഗം എം

എ മാർ ബി ജെ പിയെ പുറത്ത് നിന്ന് പിന്തുണക്കണമെന്ന് ആവശ്യപ്പെട്ടതായി പാർട്ടി നേതാവ് ജി

ജെ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കാർ ഓടിച്ചിരുന്ന പാലക്കാട് പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ബഷീറാണ് മരിച്ച മലയാളി ഒരു സ്ത്രീ ഉൾപ്പടെ ബാക്കി നാലുപേരും അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നാണ് വിവരം

മൂന്നുപേർ ഇന്ന് ആശുപത്രിയിലാണ് മരിച്ചത്

മണിക്കൂറുകൾക്കുശേഷം രണ്ടാമതും ഭൂചലനം ഉണ്ടാകുകയായിരുന്നു

പാകിസ്ഥാനുമേൽ ഏർപ്പെടുത്തിയ ഉപ്പ്രോധം പിൻവലിക്കുന്ന കാര്യം പരിഗണിക്കുന്നതായും അമേരിക്ക അറയിച്ചിട്ടുണ്ട്

ഇതോടനുബന്ധിച്ച് വൻ സുരക്ഷാ ക്രമീകരണമാണ് കാസർകോട് ഏർപ്പെടുത്തിയിരിക്കുന്നത്